ഇന്ത്യൻ നഗരങ്ങളെ മാലിനൃമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പ്രഥമ ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

ഇന്ത്യയുടെ സുപ്രധാന വികസന പദ്ധതികളിൽ പങ്കാളികളാവാൻ ചെക്ക് റിപ്പബ്ലിക്കിനോട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

പ്രളയക്കെടുതി നേരിടാൻ കേരളത്തിനെ പിന്തുണയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ

ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചാമത്തേയും അവസാനത്തേയും ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ലണ്ടനിലെ ഓവലിൽ

നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന ഉച്ചകോടി രണ്ടുദിവസം നീണ്ടുനിൽക്കും

നമ്മുടെ നഗരങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളുമെല്ലാം തന്നെ വികസനത്തിലേക്ക് നീളുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വികസിച്ചുവരുന്ന സ്റ്റാർട്ടപ്പ് ഹബ്ബാണ് ഇന്ത്യയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ആഗോള വികസന പാതയിൽ ഇന്ത്യ പ്രധാന പങ് വഹിക്കുമെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ ഡോ രാജീവ് കുമാർ അഭിപ്രായപ്പെട്ടു

് ഇതിനായി ഇരുരാജ്യങ്ങളും കൂട്ടായി പ്രവർത്തിക്കുമെന്ന് യു്എസ്

ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ അമേരിക്ക സഹകരണത്തിന് പുതിയ അദ്ധ്യായം തുറന്നതായി വിദേശകാര്യമന്ത്രി സുഷമസ്വരാജ് പറഞ്ഞു

ദക്ഷിണേഷ്യയിലെ സ്ഥിതിഗതിയും ചർച്ചാ വിഷയമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണേഷ്യൻ നയങ്ങളെ ഇന്ത്യ പിന്തുണക്കുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു

ഇന്തൃയുമായി വിവിധ മേഖലകളിൽ സഹകരിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് യു

പിന്നീട് ഇന്ത്യയും അമേരിക്കയും സുപ്രധാനമായ സൈനിക ആശയവിനിമയ സഹകരണ കരാറിൽ ഒപ്പുവച്ചു

ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ വാഹന്ന നിർമ്മാതാക്കളുടെ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലിനീകരണം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനം വാഹന നിർമ്മാതാക്കൾ ഈ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു കൂടാതെ ടാക്സി സേവനത്തിന് ഇത്തരം വാഹനങ്ങൾ പൊതു നിരത്തിൽ നിർബന്ധമാക്കിയാൽ ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിക്കുമെന്നും ശ്രീ നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടു

മുംബൈയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ പടിഞ്ഞാറൻ മേഖല ആസ്ഥാന മന്ദിരം ഇന്നലെ സന്ദർശിച്ചവേളയിലാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്

കപ്പലുകളിലെ എണ്ണ മലിനീകരണം കപ്പലൂക്ക്ർ നിലതെറ്റുന്ന അവസ്ഥ കൊടുങ്കാറ്റ് തുടങ്ങിയ സമുദ്ര സംബന്ധിയായ അടിയന്തരാവസ്ഥയെ നേരിടാനുള്ള മാർഗ്ഗുങ്ങളെക്കുറിച്ചും ഡോ

മൽസ്യതൊഴിലാളി സമൂഹത്തിന്റെ സൂരക്ഷയുടെ ഭാഗമായുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട നടപടികളും ചർച്ചാ വിഷയമായി അടിയന്തര സാഹചരൃങ്ങളിൽ തീരസൂരക്ഷാ സേന നടത്തിവരുന്ന ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രമന്ത്രി സംതൃപ്തിരേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

അക്രമി പൊലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു

വരികയാണെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ഇരു രാജ്യങ്ങളുടേയും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് രാഷ്ട്രപതി ചെക്ക് പ്രസിഡന്റ് സെമാനുമായി ചർച്ചു നടത്തും സാമ്പത്തിക മേഖലയ്ക്കായിരിക്കും ചർച്ചയിൽ ഉൌന്നൽ നൽകുക വ്യവസായം സാങ്കേതികവിദ്യ നിക്ഷേപം എന്നിവയിലൂടെ വ്യാപാരം വികസിപ്പിക്കുന്നതിന് നിരവധി അവസരങ്ങളുണ്ടെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു പ്രസിഡന്റ് മിലോസ് സെമാനുമായുള്ള ചർച്ചകളേയും പ്രതിനിധിതല ചർച്ചകളേയും തുടർന്ന് അദ്ദേഹം ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവയ്ക്കും

ഞായറാഴ്ച ചിക്കാഗോയിൽ രണ്ടാമത് ലോക ഹിന്ദു കോൺഗ്രസ്സിന്റെ പ്രത്യേക സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

കറാച്ചിയിലും മറ്റ് പ്രദേശങ്ങളിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇമ്രാൻ ഖാൻ ഗവൺമെന്റ് നിർത്തലാക്കണമെന്നും ന്യൂനപക്ഷ ദിനത്തോടനുബന്ധ്യിച്ചു നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ ആണ്ട്രി പ്റഞ്ഞു വോയിസ് ഓഫ് കറാച്ചി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയും ചേർന്നാണ് പ്രിപാടി സംഘടിപ്പിച്ചത്

പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി എറണാകുളം നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങി സാംക്രമിക രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവത്കരിക്കുകയാണ് ജനങ്ങളെ പര്യടനത്തിന്റെ ലക്ഷ്യം

നിലവിലെ ഇംഗ്ലണ്ട് ടീമിൽ മാറ്റമൊന്നുമില്ല

കഴിഞ്ഞ രാത്രിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നേപ്പാൾ ഭൂട്ടാനെ ഏകപക്ഷീയമായ നാല് ഗോളിന് തോല്പിച്ചു ഇന്ന് മാലദ്വീപ് ശ്രീലങ്കയെ നേരിടും ഇന്ത്യ മാലദ്വീപുമായി തിങ്കളാഴ്ച മത്സരിക്കും

ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ചതിനാലുണ്ടായ കനത്ത മഴ ഒഡീഷയിലെ ജനജീവിതത്തെ ബാധിച്ചു സംസ്ഥാനത്തുള്ള അംഗൻവാടികളും തലസ്ഥാനമായ ഭുവനേശ്വറിലെ സ്കൂളുകളും താൽക്കാലികമായി അടച്ചിടാൻ ഒഡീഷ ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും ഇന്നലെ വൈകുന്നേരം പെയ്ത മഴ പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സമുണ്ട്ടാക്കി നഗരത്തിൽ ഇന്നും കൂടുതൽ മഴ പെയ്യാൻ സാധൃതിയുടെണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം

അപകടത്തിൽ ഒരു ട്രക്ക് ഡ്രൈവർക്ക് പരിക്ക് പറ്റിയതായി മന്ത്രി രബീന്ദ്രനാഥ് ഘോഷ് അറിയിച്ചു വടക്കൻ ബംഗാളിലെ പ്രധാന നഗരമായ സിലിഗുരിയെ മാൻഗഞ്ച് പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത് കൊൽക്കത്തയിലെ മജേർഹട്ട് ചൊവ്വാഴ്ച തകർന്ന് പാലം അപകടം ഉണ്ടായിരുന്നു

സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ഇന്ത്യയും യുകെയും തമ്മിലുള്ള ബന്ധം ഉൌട്ടിയുറപ്പിക്കുക എന്നതാണ് പാർലമെന്ററി ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് ലേബർ പാർട്ടി എംപ്പിച്ചു